ഇന്തൃയിൽനിന്ന് ഹജ്ജ് തീർത്ഥാടനത്തിന് പുറപ്പെട്ട ആദ്യസംഘം സൌദി അറേബ്യയിലെത്തി ്മ് കതോലിക്കാ സഭയിലെ ഇപ്പോഴത്തെ സംഭവങ്ങൾ ക്രൈസ്തവ സഭകൾക്ക് അപമാനകരമായെന്ന് ആർച്ച് ബിഷപ് സൂസെപാക്യം അഭിപ്രായപ്പെട്ടു

ശികളെ ഇന്നറിയാം ഫൈനലിൽ ഫ്രാൻസ് ക്രൊയേ ഷ്യയെ നേരിടും

റൺസ് വിജയം കേന്ദ്രം മുസ്തിം സ്ത്രീകളുടെ ജീവിതം മെച്ചപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ കോൺഗ്രസ് ഉൾപ്പെടെ പ്രതിപക്ഷ പാർട്ടി കൾ മുതലാഖ് അടക്കം വിഷയങ്ങളിൽ മുസ്ലിം പുരുഷ ന്മാരുടെ മാത്രം പക്ഷം ചേരുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്ര മോദി കുറ്റപ്പെടുത്തി മുത്വലാഖ് വിഷയത്തിൽ പ്രതി പക്ഷം സ്വീകരിക്കുന്ന നിലപാട് അവരുടെ യഥാർത്ഥ മുഖം പുറത്ത് കൊണ്ടുവന്നിരിക്കുകയാണെന്ന് അദ്ദേഹം ഉത്തർപ്ര ദേശിലെ അസംഗഡിൽ പറഞ്ഞു ഇസ്ലാമിക രാജ്യങ്ങൾ നിരോധിച്ച മുത്വലാഖ് ഇന്ത്യയിലും ഇല്ലാതാക്കണമെന്ന് കോടിക്കണക്കിന് മുസ്ലിം വനിതകൾ വർഷങ്ങളായി ആവ ശ്യപ്പെടുകയാണ് കോൺഗ്രസ് ്അധ്യക്ഷന്റേതടക്കം നില പാടുകൾ മുസ്ലിം പുരുഷന്മാർക്ക് മാത്രമായി പരിമിതപ്പെടു ത്തിയിരിക്കുകയാണെന്നും നരേന്ദ്രമോദി ആരോപിച്ചു

ജെ പി അധ്യക്ഷൻ അമിത് ഷാ പറഞ്ഞിട്ടില്ലെന്ന് ദേശീയ നേതൃത്വം ട്വിറ്ററിൽ വൃക്തമാക്കി രാമക്ഷേത്ര നിർമ്മാണ ത്തെപ്പറ്റി തെലങ്കാനയിൽ അമിത്ഷാ ഒരു പ്രസ്താവനയും നടത്തിയിട്ടില്ലെന്ന് അവർ അറിയിച്ചു ഒരു വിഭാഗം മാധ്യ മങ്ങൾ അടിസ്ഥാനരഹിതമായ റിപ്പോർട്ട് പ്രസിദ്ധീകരി ക്കുകയായിരുന്നുവെന്ന് ബി ജെ പി നേതൃത്വം വിശദീക രിച്ചു ഇന്ത്യയിൽ നിന്ന് ഹജ്ജ് തീർത്ഥാടകരുടെ ആദ്യ സംഘം സൌദി അറേബ്യയിലെത്തി

ഡൽഹി വിമാ നത്താവളത്തിൽ കേന്ദ്രമന്ത്രി മുഖ്തർ അബ്ബാസ് നഖ്വി ആദ്യ ഹജ്ജ് വിമാനം ഫ്ളാഗ് ഓഫ് ചെയ്തു മദ്രസകളെ മുഖ്യധാരാ വിദ്യാഭ്യാസത്തിലേക്ക് കൊണ്ടു വരികയാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്ന് കേന്ദ്രമന്ത്രി മുഖ്തർ അബ്ബാസ് നഖ്വി പറഞ്ഞു

ന്യൂനപക്ഷങ്ങൾ ഉൾപ്പെടെ പിന്നാക്കാവസ്ഥ നേരിടുന്ന എല്ലാ വിഭാഗത്തി ലെയും വിദ്യാർത്ഥികളെ മികച്ച വിദ്യാഭ്യാസം നൽകി മെച്ച പ്പെട്ട ജോലി ലഭിക്കാൻ അവസരമൊരുക്കുന്നതിനാണ് ഗവൺമെന്റ് പ്രാമുഖ്യം നൽകുന്നത് ടീച്ചർ ടിഫിൻ ടോ യ്ലറ്റ് സൌകര്യങ്ങൾ ലഭ്യമാക്കി നിരവധി മദ്രസകളെ മുഖ്യ ധാരയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞതായും നഖ്വി അറി യിച്ചു

പുതിയ ഭേദഗതി ലക്ഷക്കണക്കിന് തൊഴിലാളികളെ വഴി യാധാരമാക്കു മെന്ന് തിരു വനന്തപുരത്ത് ചേർന്ന മോട്ടോർ വാഹന തൊഴിലാളികളുടെ അഖിലേന്ത്യാ കോ ഓഡിനേഷൻ കമ്മിറ്റി കുറ്റപ്പെടുത്തി മഹാരാജാസ് കോളേജിൽ കൊല്ലപ്പെട്ടി അഭിമന്യു വിന്റെ വീട് മന്ത്രി ജെ

അഭി മന്യുവിനെ കൊലപ്പെടുത്തിയവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്ന് അവർ ഉറപ്പ് നൽകി വർഗ്ഗീയതക്കെ തിരായ പോരാട്ടം വട്ടവടയിൽനിന്ന് ആരംഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു ഇതിനായി വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകുന്ന വികസന പ്രവർത്തനങ്ങൾ വട്ടവടയിൽ നട പ്പാക്കും ഇതിന്റെ ഭാഗമായി പി എസ് സി കോച്ചിംഗ് കേന്ദ്രവും സ്കിൽ ഡവലപ്മെന്റ് പരിപാടികളും തുട ങ്ങുമെന്ന് മന്ത്രി അറിയിച്ചു അഭിമന്യു വധത്തിൽ പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ വൈകുന്നത് പൊലീസിന്റെ നിഷ്ക്രിയത്വംകൊണ്ടാ ണെന്ന് എ ഐ എസ് എഫ് കുറ്റപ്പെടുത്തി

അറസ്റ്റ് വൈകുന്നത് മതതീവ്രവാദ സംഘടനകളുടെ പ്രവർത്ത നങ്ങൾക്ക് സഹായകമാകുമെന്ന് എ ഐ

എഫ് സംസ്ഥാന പ്രസിഡന്റ് ജെ അരുൺബാബുവും സെക്ര ട്ടറി ശുഭേഷ് സുധാകരനും പറഞ്ഞു എറണാകുളം മഹാരാജാസ് കോളജിൽ അഭിമന്യു വിനൊപ്പം ആക്രമണത്തിൽ പരിക്കേറ്റ കൊട്ടാരക്കര സ്വദേശി അർജ്ജുൻ കൃഷ്ണ ആശുപത്രി വിട്ടു കരൾ അടക്കം ആന്തരികാവയവങ്ങൾക്ക് കുത്തേറ്റ് ഗുരുതരാ വസ്ഥയിലായിരുന്നു അർജ്ജുൻ അഭിമന്യു വധക്കേ സിലെ മുഖ്യ സാക്ഷികൂടിയാണ് അർജ്ജുൻ കൃഷ്ണ കതോലിക്കാ സഭയിലെ ഇപ്പോഴത്തെ സംഭവങ്ങൾ ക്രൈസ്തവ സഭകൾക്ക് അപമാനകരമായിപ്പോയെന്ന് ആർച്ച് ബിഷ്പ് സൂസെപാക്യം അഭിപ്രായപ്പെട്ടു ജല ന്ധർ ബിഷപ് കന്യാസ്ത്രീയെ പീഡിപ്പിച്ചുവെന്ന പരാ തിയിൽ ്നീതി നടപ്പാകുമെന്നുതന്നെയാണ് വിശ്വാസ മെന്ന് അദ്ദേഹം കൊച്ചിയിൽ പറഞ്ഞു നീതി നടപ്പാ ക്കേണ്ടത് സഭയുടെ കടമയാണെന്നും കുറ്റക്കാർക്കെ തിരെ നടപടിയുണ്ടാകുമെന്നും കേരളാ കാതലിക് ബിഷപ്സ് കൌൺസിൽ പ്രസിഡന്റ്കൂടിയായ സൂസെപാകൃം വൃക്തമാക്കി

ഫൈനലിൽ രാത്രി എട്ട രയ്ക്ക് മുൻ ജേതാക്കളായ ഫ്രാൻസ് ക്രൊയേഷ്യയെ നേരിടും മോസ്കോ ലുഷ്നിക്കി സ്റ്റേഡിയത്തിലാണ് മത്സരം

ലോകകപ്പ് ചരിത്ര ത്തിൽ ബെൽജിയത്തിന്റെ ഈ നേട്ടം ആദ്യമാണ് ഇന്നലെ ലൂസേഴ്സ് ഫൈനലിൽ ബെൽജിയം ഏകപ ക്ഷീയമായ രണ്ട് ഗോളിന് ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചു

ഇതോടെ മൂന്ന് മത്സരങ്ങളുടെ പരമ്പരയിൽ ഇരു ടീമുകളും ഓരോ വിജയം സ്വന്തമാക്കി ചൊവ്വാഴ്ചയാണ് നിർണ്ണായക മൂന്നാം ഏകദിനം മന്ത്രിമാർക്ക് പ്രാപ്തി ഇല്ലാത്തതിനാൽ സ്ഠസ്ഥാനത്ത് സർവ്വീസ് സംഘടനാ നേതാക്കളാണ് ഭർണം നടത്തുന്ന തെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആലപ്പു ഴയിൽ കുറ്റപ്പെടുത്തി ഉദ്യോഗസ്ഥരെ സ്ഥലംമാറ്റി കഷ്ട പ്പെടുത്തുന്നതിനെതിരെ നിയമം ്യഅനിവാര്യമാണെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ലോക യുവജന നൈപുണ്യ ദിനാഘോഷം ഇന്ന് കൊല്ലം ടി

എം ആർട്സ് ആന്റ് സയൻസ് കോളേ ജിൽ മന്ത്രി ജെ

അസാപിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന പരി പാടിയിൽ വളണ്ടിയർക്ക് സർട്ടിഫിക്കറ്റുകൾ വിത രണം ചെയ്യും

പൂങ്കാവ് സ്വദേശി സജീറിനെയാണ് അറസ്റ്റ് ചെയ്തത് മോഷണ മുതൽ വിൽക്കാൻ സഹാ യിച്ച ചിങ്ങോലി സ്വദേശികളായ രാഗേഷിനേയും സുധ യേയും ആര്യാട് സ്വദേശിനി സൌമ്യയേയും പൊലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു രാമായണ മാസാചരണത്തിന് സംസ്ഥാനത്തെ ക്ഷേത്രങ്ങളിൽ ഒരുക്കം തുടങ്ങി രാമായണ പാരായ ണം സമൂഹ നാമജപം കഥാകഥനം രാമിയണ് പ്രശ്നോ ത്തരി ആദ്യാത്മിക പ്രഭാഷണങ്ങൾ എന്നിവയാണ് പ്രധാന പരിപാടികൾ വിശേഷാൽ പൂജകളും ഉണ്ടാ കും കർക്കിടക സംക്രമ ദിന്മായ നാളെ പ്രത്യേക പൂജ കളോടെയാണ് രാമയണ മാസാചരണത്തിന് തുടക്കമാ വുന്നത് മറ്റന്നാൾ മുതൽ ്ഹൈന്ദവ ഭവനങ്ങളിലും ക്ഷേത്രങ്ങളിലും ഒരു മാസക്കാലം രാമായണ പാരാ യണം നടത്തും ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ പ്രസിദ്ധ മായ വഴിപാട് വള്ളസദ്യകൾക്ക് ഇന്ന് തുടക്കമാകും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ വള്ളസദൃകൾ ഉദ്ഘാടനം ചെയ്യും

കാലവർഷ രോഗപ്രതിരോധം ലക്ഷൃമിട്ട് നടത്തിയ ശുചീകരണ യജ്ഞം കവരത്തിയിൽ അഡ്മി നിസ്ട്രേറ്റർ ഫാറൂഖ് ഖാൻ ഉദ്ഘാടനം ചെയ്തു ഇടുക്കി വെള്ളിയാമറ്റം ഗ്രാമപഞ്ചായത്തിന് ഐ എസ്